തീവ്രവാദികളും തൃമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികൾ ക്കൊല്ല്പ്പെട്ടു

മാർഗമെന്ന് ഉപരാഷ്ട്രപതി എം

പാർലമെന്റ് പിരിച്ചുവിട്ടു

മന്ത്രിമാരുടെ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി

ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ മിസോറം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എക്സിറ്റ് പോളുകൾ നടത്തുന്നതും പോൾ ഫലങ്ങൾ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നതും വിലക്കിയിട്ടുള്ളതായി കമ്മിഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു

സംസ്ഥാനത്തുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ എല്ലാ പ്രശ്യാന രാഷ്ട്രീയ പാർട്ടികളുടേയും റാലികൾ സംഘടിപ്പിച്ചും മൂഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് നേതാവുമായ ലാൽത്ൻവാ്ല ബി ജെ

പ്രസിഡന്റ് ജെ

പ്രസിഡന്റ് സോറാം തൻഗ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് പ്രസിഡന്റ് ലാൽ ദുഹോമ തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്

ടിക്കെയിൻ ഗ്രാമത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്

ഇന്നലെ പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ സമാധാനത്തിന്റേയും അഹിംസയുടേയും മാർഗത്തിലൂടെയാണ് ഇന്ത്യ ചരിത്രത്തിൽ ഇടം നേടിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഫ്രാൻസിന്റെ പുരോഗതിക്ക് നിസ്തുലസേവനം വഹിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഉപരാഷ്ട്രപതി ഫ്രാൻസിലെ ഇന്ത്യാക്കാരോട് അഭ്യർത്ഥിച്ചു

പാരീസിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമാധാന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും

ബി ഐ സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ കേന്ദ്ര്മൂന്ത്രി ദയാനിധി മാരൻ സമർപ്പിച്ച ഹർജി മദ്രാസ് ഉഐക്കോടതി തള്ളി മാരൻ സഹോദരന്മാർ സൺ ടിവി ഉദ്യോഗസ്ഥർ മുതിർന്ന ബി എസ് എൻ എൽ

ഹർജി തള്ളിയ ജസ്റ്റിസ് ജഗദീശ് ചന്ദ്ര നടപടികൾ പൂർത്തീകരിച്ച് വീണ്ടും കുറ്റപത്രം സമർപ്പിക്കാൻ സിബിഐ യോട് നിർദ്ദേശിച്ചു

അന്തരീക്ഷ മലിനീകരണ തോതിൽ അപകടകരമായ നിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഗവൺമെന്റ് ഏജൻസിയായ സഫർ നടത്തിയ പരിശോധനയിൽ വ്യാഴാഴ്ച തന്നെ അന്തരീക്ഷ മലിനീകരണ തോത് അത്യന്തം അപകടകരമായ നിലയിലെത്തിയിരുന്നു

രാജ്യതലസ്ഥാനത്തെ വായു മലിനീകരണം തടയാൻ കർശന നടപടികളാണ് ആം ആദ്മി പാർട്ടി ഭരണകൂടം സ്വീകരിക്കുന്നത്

കനത്ത മൂലിനീകരണത്തോടൊപ്പം ശൈതൃവും ഡൽഹിയിൽ പിടിമൂരുക്കുകയാണ്

സംയോജിത ചെക്ക് പോസ്റ്റ് പദ്ധതിയുടെ കീഴിലുള്ള ഏഴ് ചെക്ക് പോസ്റ്റുകളിൽ അഞ്ചെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായതായി ആഭ്യന്തരമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യാ നേപ്പാൾ അതിർത്തിയിലുള്ള റക്സൌൾ ജോഗ്ബനി ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള അഗർത്തല ഇന്ത്യാ പെട്രാപോൾ ഇന്തൃ പാക് അതിർത്തിയിലുള്ള അറ്റാരി എന്നീ സംയോജിത ചെക്ക് പോസ്റ്റുകളാണ് പ്രവർത്തനക്ഷമമായത്

ആന്ധ്രപ്രദേശ് കർണാടക മഹാരാഷ്ട്ര പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഫിഷറീസ് മന്ത്രിമാർ പങ്കെടുക്കുന്നു പരമ്പരാഗത മത്സ്യത്തൊഴില്ലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനം പ്രാപ്യമാക്കുന്നതിന് പ്പർശീലനം ഉൾപ്പെടെയുള്ള നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളൂമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സ്മ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന് പുറമേ തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധുന്നു സാധ്യമാക്കുന്നതിന് ആധുനിക ബോട്ടുകൾ മത്സ്യത്തൊഴിലാളി സഹകരണസംഘങ്ങൾ വഴി ലഭ്യമാക്കും അനിയന്ത്രിതമായ മത്സ്യബന്ധനം മത്സ്യ സമ്പത്തിന്റെ നാശത്തിനു കാരണമാകുന്നുവെന്ന വസ്തുത കണക്കിലടുത്ത് അത് നിയന്ത്രിക്കുന്നതിന് വിദഗ്ധരുടെ സഹകരണത്തോടെ നടപടികൾ കൈക്കൊണ്ടു വരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇന്നലെ രാത്രി വൈകി പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം പാർലമെന്റ് പിരിച്ചുവിട്ടതായും പൊതുതെരഞ്ഞടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം മുതൽ സമർപ്പിക്കാമെന്നും അറിയിക്കുന്നു

മഹീന്ദ രാജപക്സെ നയിക്കുന്ന പുതിയ ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ വന്നതാണ് തീരുമാനത്തിനു പിന്നിലെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

രണ്ട് സ്ഥലങ്ങളിലായാണ് തീ പടർന്നത്